കേരളത്തിൽ അഞ്ച് മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിലെ സത്താറ ബീഹാറിലെ സമസ്തിപൂർ സീറ്റുകളിലാണ് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്ര ഹരിയാന നിയ മസഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിയും പ്രതിപക്ഷ കക്ഷികളും ഏറെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് ഇന്ന് നിശബ്ദ പ്രചാരണം നാളത്തെ വോട്ടെടുപ്പിനുശേഷം വ്യാഴാഴ്ചയാണ് വോട്ടെണ്ണൽ രുട്ടിട്ട്ട്ട്ട്ട്ട വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ നേട്ടങ്ങൾക്കൊപ്പം സാഹോ ദരൃവും സഹവർത്തിത്വും കേരളത്തിന്റെ സവിശേഷതയാണെന്ന് ഗവർ ണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു കോഴിക്കോട് മുഹമ്മദ് റഫി ഫൌ ണ്ടേഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഗായകൻ പി ജയചന്ദ്രന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ സംഗീതജ്ഞൻ മുഹമ്മദ് റഫിക്ക് ഇത്രയധികം ആരാധകർ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ഉ ണ്ട് എന്നത് ആശ്ചര്യപ്പെടുത്തുന്നതായി ഗവർണർ പറഞ്ഞു കലയോടും സം സ്കാരത്തോടും കേരളീയർ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും മഹ ത്തരമാണെന്നും ഗവർണർ വിലയിരുത്തി അലിഗഡ് മുസ്ലിം യൂനിവേഴ്സി റ്റ് ഓൾഡ് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ ഫാറൂഖ് കോളേജിൽ സംഘടി പ്പിച്ച സയ്യിദ് ദിനാഘോഷ പരിപാടിയും ഗവർണർ ഉദ്ഘാടനം ചെയ്തു മ ത ഭൌതിക വിദ്യാഭ്യാസം സമന്ധയിപ്പിച്ച കേരള മുസ്ലിങ്ങളുടെ പഠനരീതി മാതൃകാപരമാണെന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു

പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ കവളപ്പാറ പാതാർ എന്നിവിടങ്ങൾ അദ്ദേഹം നേരിൽകണ്ട് സ്ഥിതിഗതികൾ വിലയി രുത്തും

ജി സർവകലാശാല അദാലത്തിൽ വിദ്യാർത്ഥികൾക്ക് മോഡറേഷൻ നൽകിയതിൽ തെറ്റില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ്ഖാന് വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് റിപ്പോർട്ട് നൽകി മാനുഷിക പരിഗ ണനയും വിദ്യാർത്ഥികളുടെ നന്മയും കരുതിയാണ് മോഡറേഷൻ നൽകി യതെന്നും ഇതുസംബന്ധമായ എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ മോഡറേഷൻ നൽകാൻ സർവകലാ ശാലക്കും സിൻഡിക്കേറ്റിനും അധികാരമുണ്ടെന്നും വൈസ് ചാൻസലർ അറി യിച്ചു ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് സർവകലാശാല രജിസ്ട്രാറും റിപ്പോർട്ട് കൈമാറി രുട്ടിട്ട്ട്ട്ട്ട്ട്ട കണ്ണൂർ മട്ടന്നൂരിലെ റവന്യൂ ടവറിനും സ്പെഷ്യാലിറ്റി ആശുപത്രിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തറക്കല്ലിടും തുടർന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവള ഭരണസമിതി യോഗത്തിലും അവിടത്തെ മഴ വെള്ള സംഭരണം സംബന്ധിച്ചു യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും വൈകീട്ട് ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടം മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും

സമഗ്ര ട്രോമാകെയർ പദ്ധതിയുടെ ഭാഗമായി അനുവദിച്ച നൂറ് ആംബുലൻസുകൾ വൈകീട്ട് കണ്ണൂരിൽ മന്ത്രി കെ കെ ശൈലജ ഫ്ളാഗ് ഓഫ് ചെയ്യും റോഡപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് അടിയന്തിര ചികിത്സ ഉറപ്പുവരുത്താനാണ് സമഗ്ര ട്രോമാകെയർ പദ്ധതി നടപ്പാക്കുന്നത് ദർവ്വഹി മരട് ഫ്ളാറ്റ് നിർമ്മാണ തട്ടിപ്പിൽ ജെയിൻ ഹൌസിംഗ് മാനേജിംഗ് ഡയ റക്ടർ സന്ദീപ് മേത്തയ്ക്കായി ക്രൈംബ്രാഞ്ച് തെരച്ചിൽ നോട്ടീസ് പുറപ്പെ ടുവിക്കും വെള്ളിയാഴ്ച ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നൈയിലെ ഓഫീ സിൽ എത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇയാൾ രാജ്യം പിടാൻ സാധ്യ തയുണ്ടെന്ന വിലയിരുത്തലിലാണ് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് മരട് അന ധികൃത ഫ്ളാറ്റ് സമുച്ചയത്തിലെ നഷ്ടപരിഹാരത്തിന് അർഹരായ ഉടമകൾ നൽകുന്ന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുദിവസത്തിനകം തുക അക്കൌണ്ടിലെത്തുമെന്ന് അധികൃതർ അറിയിച്ചു

മലപ്പുറം പാലക്കാ ട് എറണാകുളം ഇടുക്കി പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം ജില്ലക ളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ ഇടിയും മിന്നലും ഉണ്ടാകാനും സാധ്യതയുണ്ട് നാളെവരെ കടലിൽ മീൻപി ടിക്കാൻ പോകരുതെന്ന് മത്സൃത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയി ട്ടുണ്ട്

ഇന്നലെ ന്യൂഡൽഹി യിൽ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുമായി പ്രധാനമന്ത്രി ഔദ്യോഗിക വസതി യിൽ കൂടിക്കാഴ്ച നടത്തി ലാളിതൃത്തിന്റെ പര്യായമായ ഗാന്ധിജിയുടെ ദർശനങ്ങൾ എക്കാലവും പ്രസക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു

ദണ്ഡിയിൽ സ്ഥാപിച്ച ഗാന്ധി മ്യൂസിയം സന്ദർശിക്കാൻ മോദി ചലച്ചിത്രരംഗത്തെ പ്രമുഖരോട് അഭ്യർത്ഥിച്ചു ദർവ്വെട്ടറ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോൾ ആറാം പതിപ്പിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമാകും കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തി ലാണ് ഉദ്ഘാടന ചടങ്ങ്

ഉദ്ഘാടന ചടങ്ങിൽ ബോളിവുഡ് താരങ്ങളും ബി സി സി ഐ നിയുക്ത പ്രസിഡന്റ് സൌരവ് ഗാംഗുലിയും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും ദർവ്വെട്ടറ റാഞ്ചിയിൽ ഇന്തൃ ദക്ഷിണാഫ്രിക്ക മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്തൃ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കും

രംഭട്ട്ട്ട്ട്ട്ട്ട് നഷ്ടത്തിലായ സ്വകാര്യ സ്കൂളുകളെ ഏറ്റെടുത്ത് ജനപങ്കാളിത്ത ത്തോടെ പരിപോഷിപ്പിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ അറിയിച്ചു കുന്നം കുളം തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒരുകോടി രൂപ ചെലവിൽ നിർമ്മി ക്കുന്ന സ്കൂൾ കെട്ടിടത്തിന് തറക്കല്പിടുകയായിരുന്നു മന്ത്രി സ്വകാര്യ മേഖ ലയിലെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെ എങ്ങനെ മുന്നോട്ടു കൊണ്ടുപോകണമെന്ന് പരിശോധിക്കാൻ മാനേജ്മെന്റുകളിൽ നിന്ന് വിവര ങ്ങൾ ശേഖരിക്കും അവയുടെ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു

സി മൊയ്തീൻ അറിയിച്ചു നഗരത്തിലെ റിംഗ്റോഡ് വികസനമാണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറു ക്കൻപാറയിൽ താലൂക്ക് ഓഫീസ് കെട്ടിടം പണിയുന്നതിന് പത്തുകോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു

പി മൊയ്തീൻ സേവാ മന്ദിറിന്റെ പുതിയ കെ ട്ടിടം രാവിലെ മന്ത്രി കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്യും

കെ രാഘവൻ എം പി മുഖ്യാതിഥിയായിരിക്കും

മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ യു പി വിഭാഗത്തിൽ മല പ്പുറവും ഹൈസ്കൂൾ വിഭാഗത്തിൽ പാലക്കാടും ജേതാക്കളായി കാഴ്ച കേൾവി പരിമിതരുടെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്

എസ് ആർ ടി

കിഫ്ബി കെ എസ് ആർ ടി

മന്ത്രി കെ രാജു സമ്മേള നത്തെ അഭിവാദ്യം ചെയ്തു രദേഷ്ടെടു അധ്യാപികമാരുടെ ജോലിസമയം കൂടുന്നുവെന്ന പരാതികൾ വർദ്ധി ച്ചുവരികയാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ എം

രംഭട്ട്ട്ട്ട്ട്ട്ട്ട്ട തൊഴിയൂർ സുനിൽ വധക്കേസിൽ ജം ഇയ്യത്തുൽ ഇസ്ലാമിയ തീവ്ര വാദ സംഘടനയുടെ കമാൻഡർ പള്ളം പുത്തൻ പീടിയേക്കൽ സുലൈ മാനെ അറസ്റ്റ് ചെയ്തു സുനിൽ വധക്കേസിലും വീട്ടുകാരെ ആക്രമിച്ച സംഭ വത്തിലും ഇയാൾ കുറ്റസമ്മത മൊഴി ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട്

ആന്ധ്രാപ്രദേശിൽ പുരാവസ്തുക്കൾ മോഷ്ടിച്ചതിന് ഇയാൾക്ക് ജയിൽശിക്ഷ ലഭിച്ചിട്ടുണ്ട് രുട്ട്ട്ട്ട്ട്ട്ട്ട ഭാരതപ്പുഴക്ക് മുകളിലെ കുറ്റിപ്പുറം പാലത്തിൽ നവംബർ ആറുമുതൽ എട്ടുദിവസം രാത്രികാല ഗതാഗതം പൂർണ്ണമായി നിർത്തിവെയ്ക്കും രാത്രി ഒൻപത് മുതൽ രാവിലെ ആറുവരെയായിരിക്കും ഗതാഗതം നിർത്തിവെച്ച് അറ്റകുറ്റപണികൾ പൂർത്തിയാക്കുന്നത് പാലത്തിൽ ഇന്റർലോക്ക് കട്ടകൾ പതിക്കും കാലാവസ്ഥ അനുകൂലമായാൽ ആറാം തിയ്യതി തന്നെ പ്രവൃത്തി തുടങ്ങും മിനി പമ്പയോട് ചേർന്ന തകർന്ന റോഡിൽ ഇന്റർലോക്ക് ഇഷ്ടിക വിരിക്കാനും മന്ത്രി കെ

സേഫ് കൊല്ലം പദ്ധതിയിൽ കരുനാഗപ്പള്ളി യിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം